ഇടുക്കി രാജമലയിൽ മണ്ണിടിഞ്ഞ് അഞ്ചു മരണം നിരവധി കുടുംബങ്ങൾ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നു

കെ ശൈലജ

ശബരിമലയിലും ഉരുൾപൊട്ടി

രേര അഞ്ചു പേർ മരിക്കുകയും നിരവധി പേരെ കാണാതാവുകയും ചെയ്ത ഇടുക്കി രാജാമലയിൽ രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജ്ജിതമായി തുടരുന്നു

അപകടത്തിൽപെട്ടവർക്ക് ചികിത്സ ലഭ്യമാക്കാൻ പ്രത്യേക മൊബൈൽ മെഡിക്കൽ സംഘത്തെ അയച്ചതായി മന്ത്രി കെ

ശൈലജ തിരുവനന്തപുരത്ത് അറിയിച്ചു

കോട്ടയം എറണാകുളം ജില്ലകളിൽ നിന്ന് പ്രത്യേക മെഡിക്കൽ സംഘം പുറപ്പെട്ടതായും ആവശ്യമെങ്കിൽ കൂടുതൽ മെഡിക്കൽ സംഘത്തെ അയക്കുമെന്നും മന്ത്രി പറഞ്ഞു ആശുപത്രികൾ അടിയന്തരമായി സജ്ജമാക്കാൻ നിർദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു ദ്ദേ മൂന്നാർ പെട്ടിമുടി മണ്ണിടിച്ചിലിൽ രക്ഷാ പ്രവർത്തനം കാര്യക്ഷമമാക്കണമെന്ന് മന്ത്രി എം

കൂടുതൽ ഫയർഫോഴ്സിനെ സ്ഥലത്തേക്ക് അയക്കുമെന്ന് മന്ത്രി പറഞ്ഞു

ദേദ വയനാട് മേപ്പാടി മുണ്ടക്കയം വനറാണി എസ്റ്റേറ്റിലുണ്ടായ ഉരുൾപൊട്ടലിൽ രണ്ട് വീടുകളും ബ്രിട്ടീഷ് പാലവും പൂർണമായും ഒലിച്ചുപോയി

നിരവധി വീടുകൾ ഭാഗികമായി തകർന്നു

ആളുകളെ നേരത്തെ വീടുകളിൽ നിന്ന് ഒഴിപ്പിച്ചതിനാൽ വൻ അപകടം ഒഴിവായി പ്രദേശത്ത് രക്ഷാപ്രവർത്തനം തുടരുന്നു രുഭ വയനാട് ജില്ലയിൽ കേരള കർണ്ണാടക അതിർത്തിയായ മുത്തങ്ങ പൊൻകുഴി ദേശീയപാതയിൽ വെള്ളം കയറി ഗതാഗതം പൂർണ്ണമായും നിലച്ചു

മാനന്തവാടി അഗ്നി അരക്ഷാ നിലയത്തിന്റെ പ്രവർത്തനം താൽക്കാലികമായി മാനന്തവാടി ഗവ ഹൈസ്കൂളിലേക്ക് മാറ്റി തലപ്പുഴ മക്കിമലയിൽ ഉരുൾപ്പൊട്ടാൻ സാധ്യതയുണ്ടെന്നും പ്രദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്നും പൊലീസ് അറിയിച്ചു വയനാട് ചൂരൽ മലയിൽ ഉരുൾപൊട്ടലുണ്ടായതിനെ തുടർന്ന് മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിലും സമീപ പ്രദേശങ്ങളിലും അപായ സൂചന നൽകി ചാലിയാറിൽ വെള്ളം വലിയതോതിൽ ഉയരാൻ സാധ്യതയുണ്ടെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി പുഴയുടെ സമീപം താമസിക്കുന്നവർ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ ജില്ലാ കലക്ടർ ആവശ്വപ്പെട്ടു ദര കനത്ത മഴയിലും മലവെള്ളപ്പാച്ചിലിലും മലപ്പുറം കനോലി ഇക്കോ ടൂറിസം സെന്ററിലെ തൂക്കുപാലം പൂർണ്ണമായും തകർന്നു രുമ കണ്ണൂർ വയനാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന കൊട്ടിയൂർ ബോയ്സ് ടൌൺ റോഡിൽ പാൽ ചുരത്തിൽ മണ്ണിടിച്ചിലിനെ തടർന്ന് ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെട്ടു പാൽച്ചുരം ആശ്രമം കവലക്ക് സമീപമാണ് മണ്ണിടിഞ്ഞത്

മലയോരത്ത് തേർമലയിൽ ഉരുൾ പൊട്ടൽ ഭീഷണി നിലനിൽക്കുന്നുണ്ട് രുമ കനത്ത മഴയെ തുടർന്ന് ശബരിമല ഉൾവനത്തിൽ ഉരുൾപൊട്ടി പത്തനംതിട്ട ജില്ലയുടെ മലയോര മേഖലയിൽ മഴ ശക്തമായി

ഭൂതത്താൻകെട്ട് ഡാം തുറന്നതോടെ ആലുവ മണപ്പുറം ഉൾപ്പെടെ ഒട്ടേറെ പ്രദേശങ്ങൾ വെള്ളത്തിനിടിയിലാണ് മൂവാറ്റുപുഴയാറിൽ ജല നിരപ്പ് ഉയർന്നതിനാൽ തീരപ്രദേശത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു

രുമ കോട്ടയം ജില്ലയിൽ മലയോര മേഖലയിൽ കനത്ത മഴ തുടരുന്നു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

ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും സാധ്യതയുണ്ടെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി

ദേദ സംസ്ഥാനത്ത് ചൊവ്വാഴ്ച വരെ കനത്ത മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ് നിലവിലെ ന്യൂനമർദ്ദത്തിനു പിന്നാലെ മറ്റന്നാൾ ബംഗാൾ ഉൾക്കടലിൽ മറ്റൊരു ന്യൂനമർദം കൂടി രൂപം കൊള്ളും ഇതിന്റെ സ്വാധീനത്തിലാണ് കനത്തമഴ കൂടുതൽ ദിവസങ്ങൾ നീളുന്നത്

ആദ്യമായാണ് പ്രതിദിന കോവിഡ് ബാധ ഇത്രയും ഉയരുന്നത്

പുതിയ വിദ്യാഭ്യാസ നയം സംബന്ധിച്ച ദേശീയ സമ്മേളനം വീഡിയോ കോൺഫറൻസ് വഴി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഉന്നത വിദ്യാഭ്യാസത്തിലെ പരിഷ്കാരങ്ങൾ എന്ന വിഷയത്തിൽ നടക്കുന്ന കോൺക്ലേവിൽ ഭാവിയിലെ വിദ്യാഭ്യാസം ഗുണകരമായ ഗവേഷണം സാങ്കേതിക വിദ്യകളുടെ സന്തുലിത ഉപയോഗം തുടങ്ങി ഒട്ടേറെ സെഷനുകൾ സംഘടിപ്പിക്കുന്നുണ്ട് രുമ ഇന്ന് ദേശീയ കൈത്തറി ദിനം കൈത്തറി നെയ്ത്തു വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനും നെയ്ത്തുകാരുടെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധവൽക്കരണം നൽകുന്നതിനുമായാണ് ദിനാചരണം

രുമ രാജ്യത്തെ ഊർജ്ജസ്വലമായ കൈത്തറി കരകൌശല മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിവാദ്യമർപ്പിച്ചു രാജ്യത്ത് തദ്ദേശീയമായ കരകൌശല വസ്തുക്കൾ സംരക്ഷിക്കാൻ അഭിനന്ദനാർഹമായ പരിശ്രമമാണ് ഇവർ നടത്തിയതെന്ന് ദേശീയ കൈത്തറി ദിനത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി പറഞ്ഞു ആത്മനിർഭർ ഭാരത് പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ആത്മനിർഭർ ഭാരതിനായി സംഭാവനകൾ അർപ്പിക്കാൻ കേന്ദ്ര ടെക്സ്റ്റൈൽസ് മന്ത്രി സ്മൃതി ഇറാനിയും ജനങ്ങളോട് ആവശ്യപ്പെട്ടു അഞ്ചു വർഷം മുമ്പ് ഈ ദിവസമാണ് ദേശീയ കൈത്തറി ദിനത്തിന് തുടക്കം കുറിച്ചതെന്നും സ്മൃതി ഇറാനി പറഞ്ഞു രുദ സ്വർണവിലയിൽ ഇന്നും വർധന

രുമ ഓഹരി വിപണിയിൽ നഷ്ടത്തോടെ തുടക്കം

രുമ രാജ്യത്തെ ആദ്യ കിസാൻ പ്രത്യേക പാർസൽ ട്രെയിൻ കിസാൻ റെയിൽ സർവീസ് ആരംഭിച്ചു മഹാരാഷ്ട്രയിലെ ദേവ്ലാലിയിൽ നിന്ന് ബിഹാറിലെ ദാനാപൂരിലേക്ക് ആരംഭിച്ച ആദ്യ സർവീസ് കേന്ദ്ര കൃഷി മന്ത്രി നരേന്ദ്രസിങ് തോമറും റെയിൽവേ മന്ത്രി പിയുഷ് ഗോയലും ചേർന്ന് വീഡിയോ കോൺഫറൻസിലൂടെ ഫ്ളാഗ് ഓഫ് ചെയ്തു രാജ്യത്ത് കാർഷികോത്പന്നങ്ങൾ അടുത്ത വിപണിയിൽ എത്തിക്കുന്നതിന് കഴിഞ്ഞ കേന്ദ്ര ബജറ്റിലാണ് കിസാൻ റെയിൽ ട്രെയിൻ സർവീസുകൾ പ്രഖ്യാപിച്ചത്